യെ പരാജയപ്പെടുത്തി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം എടിപി ഫൈനൽസ് ടെന്നീസിൽ ഡൊമനിക് തീം ഫൈനലിൽ

സാമ്പത്തിക വീണ്ടെടുപ്പ് തൊഴിൽ വ്യാപാരം തുടങ്ങിയ മേഖലയിലെ തിരിച്ചു വരവിൽ മാത്രം ഒതുങ്ങാതെ ഭൂമിയുടെ സംരക്ഷണത്തിന് പ്രധാന്യം നൽകുന്ന പ്രവർത്തനങ്ങളാണ് ആവശ്യം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഗ്രാമീണ് ജല ശുചിത്വ കമ്മിറ്റി അംഗങ്ങളുമായും പ്രധാനമന്ത്രി സംവദിക്കും

രണ്ട് വർഷത്തിനകം പദ്ധതികൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം

ലാൽ ബഹാദൂർ ശാസ്ത്രി ദേശീയ മികവ് പുരസ്കാരം വെർചലായി സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വർദ്ധിച്ചു വരുന്ന ഭീകരപ്രവർത്തനങ്ങളിൽ ഉപരാഷ്ട്രപതി ആശങ്ക അറിയിച്ചു അന്താരാഷ്ട്ര ഭീകരതയ്ക്കെതിരെ ഇന്ത്യ മുന്നോട്ടു വച്ച സമഗ്ര ഉടമ്പടി സംബന്ധിച്ച ശുപാർശ യു എൻ അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കാലാനുസൃതമായ മാറ്റങ്ങൾ ഐക്യരാഷ്ട്രസഭയിലും ആവശ്യമാണെന്നും ശ്രീ

അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് ഒരു സമ്മേളനം ജനീവയിൽ നടക്കാനിരിക്കെയാണ് എംബസികളെ ലക്ഷ്യം വെച്ച് ആക്രമണമുണ്ടായിരിക്കുന്നത്

ഇംഗ്ലണ്ടിൽ വീഡിയോ കോൺഫറൻസിലൂടെ നടന്ന വാതായൻ യു

ആഘോഷ പരിപാടിയിലാണ് ശ്രീ

നാനാത്വത്തിലെ ഏകത്വമാണ് ഇന്ത്യയുടെ മുഖമുദ്രയെന്ന് പുരസ്കാരം സ്വീകരിച്ച് നടത്തിയ പ്രസംഗത്തിൽ ശ്രീ

ഭാഷകൾക്ക് നമ്മുടെ സംസ്കാരത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്

കോടി രൂപയുടെ വിവിധ വികസനപദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം തമിഴ്നാട്ടിൽ നിരവധി വികസന പദ്ധതികളാണ് കേന്ദ്രസർക്കാർ ആവിഷ്ക്കരിച്ച് നടപ്പാക്കിയിരുന്നത് കോൺഗ്രസും ഡിഎംകെയും നിരവധി വർഷങ്ങൾ ഭരണം കയ്യാളിയെങ്കിലും സംസ്ഥാനത്ത് വികസം ഉറപ്പാക്കാനായിട്ടില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു

മഹാരാഷ്ട്രയിൽ കോവിഡ് വ്യാപ്പക്കും കുറഞ്ഞിരുന്നെങ്കിലും ദീപാവലിക്കു ശേഷം രോഗികളുള്ള് എണ്ണം ഉയരുകയാണ്

സെമി ഫൈനലിൽ മൂന്ന് സെറ്റ് നീണ്ട ആവേശ പോരാട്ടത്തിനൊടുവിലാണ് ലോക മൂന്നാം നമ്പർ താരം തീം ഫൈനലിലെത്തിയത്

തീമിന്റെ തുടർച്ചയായ രണ്ടാം എടിപി കലാശ പോരാട്ടമാണിത്

ഗ്ശോ്പ്യി്ൽ ഇന്നലെ ഏഴാം സീസണിലെ രണ്ടാം മത്സരത്തിൽ കൃതുത്ത്രായ മുംബൈ എഫ് സിയെയാണ് നോർത്ത് ഇൌസ്റ്റ് പർട്ജയപ്പെടുത്തിയത് എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ജയം

പാരീസ് ഉടമ്പടി മുന്നോട്ട് വെച്ച ലക്ഷ്യം ഇന്ത്യ കൈവരിക്കുക മാത്രമല്ല മറികടക്കുകയും ചെയ്തിരിക്കുകയാണ്

സിംങ്ങ് ആകാശവാണിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു